ഇറക്കുമതി ഉല്പന്നങ്ങളെ ആശ്രയിക്കുന്ന രീതി കുറയ്ക്കണമെന്നും ക്ടോവിഡ് പ്രതിസന്ധി അവസരമാക്കണമെന്നും പ്രധാനമന്ത്രി കൽക്കരി ഖനികളുടെ ലേല്ത്തീന് തുടക്കം

മൂന്ന് ദിവസം മുമ്പാണ് മട്ടന്നൂർ എക്സൈസ് ഓഫീസിലെ ജീവനക്കാരനായ സുനിൽ കുമാറിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്

ഇദ്ദേഹത്തിന് രോഗബാധ സ്ഥിരീകരിച്ച തിനെ തുടർന്ന് മട്ടന്റൂർ എക്സൈസ് ഓഫീസ് അടയ്ക്കു കയും ചെയ്തിരുന്നു

സുനിൽ കുമാറിന് എവിടെ നിന്നാണ് രോഗബാധയുണ്ടാ യതെന്ന് വൃക്തമല്ല

പ്രവാസികളുടെ വരവ് എങ്ങനെ മുടക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ശ്രീ

ശക്തമായ പനിയ്ക്കു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പരിശോധന യിലാണ് രോഗം സ്ഥിരിക്കിച്ചത് ആദ്യ പരിശോധനാഫലം നെഗറ്റീവായിരുന്നു ഡിൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധിക ചുമതല കൈമാറിയിട്ടുണ്ട്

കൽക്കരി ഖനികളുടെ ലേലത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള അഭിസംബോധന യിലാണ് അദ്ദേഹം ഇക്കാരൃം വൃക്തമാക്കിയത്

ഊർജ്ജ മേഖലയിൽ സ്വയംപര്യാപ്തത ലക്ഷ്യമിട്ടാണ് കൽക്കരി ഖനികളുടെ ലേലം എന്ന പ്രധാന തീരുമാനം ഇന്ന് നടപ്പാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ദോഹ ഷാർജ് എന്നിവിടങ്ങളിൽ നിന്നും വിമാനങ്ങൾ എത്തുന്നുണ്ട്ട്

ഐ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പത്താം പ്രതി സഹൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ കീഴടങ്ങി മറ്റ് പ്രതികളെ മുഴുവൻ പൊലീസ് നേരത്തെ പിടികൂടിയിരുന്നു

എസ് എൻ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ

മാവിലായി സ്വദേശികളാണ് മരിച്ചത്